അസ്ഥിരമായ ലോകത്ത് സമാധാനവും ക്ഷേമവും പുനസ്ഥാപിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി

മുസ്ലീം വിഭാഗ്ത്തിലെ ബഹുഭാര്യത്വും നിക്കാഹ് ഹൂല്ലാക്കലും ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട് ്ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു

മെക്സികോയെയും ബെൽജിയം ജപ്പാനെയും നേരിടും

ന്യൂഡൽഹ്ലീയിൽ നടക്കുന്ന ഇന്ത്യൻ നയതന്ത്രജ്ഞ രുടെ ഒൻപതാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായി രുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ആഗോളതലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച പൊതുവായ വീക്ഷണത്തിൽ സമഗ്രമായ മാറ്റം സംഭവിച്ചതായി വിദേശകാരൃമന്ത്രി സുഷമസ്വരാജ് പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ ജന റൽ വികെ

അക്ബർ തുടങ്ങിയവരും എല്ലാ ഇന്ത്യൻ അംബാസിഡർമാരും ഹൈക്കമ്മീഷണർമാരും സമ്മേളനത്തിൽ സംബന്ധിച്ചു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിൽ മൂന്നംഗ ബഞ്ച് പരിഗണിക്കുന്ന ഹർജിയിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അന്തിമവിധി പുറപ്പെടുവിക്കും

കേന്ദ്ര ഗവൺമെന്റിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാകും

എൻബിസിസിക്കും സിപിഡബ്ല്യൂ ഡിക്കും ഹരിത ട്രിബ്യൂണൽ ഇതു സംബന്ധിച്ച നിർദ്ദേശം നല്കി

പുനർവികസന പദ്ധ തിയിൽ എത്രമാത്രം മരങ്ങളാണ് മുറിക്കാനുദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോളനികളിൽ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പതിനായിരത്തിലേറെ മര ങ്ങൾ മുറിച്ചു നീക്കാനുള്ള നിർദ്ദേശം സ്റ്റേ ചെയ്യണം എന്നാവശ്യ പ്പെട്ട് ഒരു സംഘടന നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയായി രുന്നു ട്രിബ്യൂണൽ

ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സോഫ്റ്റ്വെയറുകളുടെ കയറ്റുമതി ഐടി സേവനങ്ങൾ യുവാ ക്കൾക്ക് തൊഴിലവസരം എന്നിവ ലക്ഷ്യമിട്ടാണ് കേന്ദ്രം സ്ഥാപിക്കു ന്നത്

സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കാവേരി ജല മാനേജ്മെന്റ് അതോറിട്ടി രൂപീകൃത മായതിൽ സിഡബ്ല്യൂഎംഎ അധ്യക്ഷൻ മസൂദ് ഹുസൈൻ മാധ്യമ ങ്ങളോട് സംസാരിക്കവെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു

സ്മൂഹത്തിലെ ദുർബലരായ ആളുകളുടെ ക്ഷേമത്തിനാണ് ഗവൺമെന്റ് കൂടുതൽ ഊന്നൽ നല്കുന്നത് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി എൻ

എ ഗവൺമെന്റ് വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി അദ്ദേഹം ഇംഫാലിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്രവികസനത്തിനാണ് കേന്ദ്രം ഊന്നൽ നല്കുന്നതെന്ന് ശ്രീ അത്വാലെ കൂട്ടിച്ചേർത്തു

കൃാമ്പസുകളിൽ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള നീക്കം ഏതു ഭാഗത്തു നിന്നായാലും ഗവൺമെന്റ് കർശ്രനമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രിയാണ് അഭിമന്യൂപിക്കും സുഹൃത്തായ കോട്ടയം സ്വദേശി അർജ്ജുനും കുത്തേറ്റത്

പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്ലിക്ലപാതകത്തിൽ കലാശിച്ചത് പ്രതികളായ മൂന്ന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു

കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി അഭ്യൂഹം പരന്നതിനെ തുടർന്ന് ധൂലൈ ജില്ലയിലെ ആദിവാസി ഗ്രാമത്തിലായിരുന്നു സംഭ വം സംഭവം ദൌർഭാഗൃകരമെന്ന് ശ്രീ ദേവേന്ദ്ര ഭട്നാവിസ് അഭിപ്രാ യപ്പെട്ടു

ബാക്കിയുള്ള പ്രതികളെ പിടികൂടാൻ അഞ്ച് പൊലീസ് സംഘങ്ങളെ നിയോഗിച്ചതായി എസ്

ഇതി നായി അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണം യോഗൃതയുടെ അടിസ്ഥാന ത്തിൽ പ്രവേശന സമയത്തായിരിക്കും ഈ ആനുകൂലൃം നല്കുക

വിശദാംശങ്ങളുമായി ശ്രീലത

എന്നാൽ പ്രത്യാക്രമണ മികവിൽ ലോകചാമ്പൃന്മാരായ ജർമ്മനിയെ വീഴ്ത്തിയ മെക്സിക്കോ കൊറിയേയും തോൽപ്പിച്ചാണ് പ്രീ കാർട്ടറിൽ ഇടം ഉറപ്പിച്ചത് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കളിച്ചിട്ടും ഒരു തവണ പോലും കിരീടം നേടാത്ത ടീമാണ് മെക്സിക്കോ

അതിനാൽ ജപ്പാനെതിരായ മത്സരം ടീമിന് വലിയ വെല്ലുവിളിയാകില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു

എഫ് ഗ്രൂപ്പിൽ ജപ്പാനൂം സെനഗലിനൂം തൂല്യപോയിന്റൂം ഗോൾ നിലയിലൂം ഒരുപോലെ വന്നതോടെയാണ് ഫെയർപ്പേ അടിസ്ഥാനമാക്കി ജപ്പാന് പ്രീ കാർട്ടർ ബെർത്ത് നേടിയത്

ഡബ്ലിനിൽ ഇന്നല്ലിറ്റ്സിട്ന്ന ചടങ്ങിൽ ഇവർക്കു പുറമെ വിരമിച്ച ഇംഗ്ലണ്ട് വനിതൃക്പിക്കറ്റ് കീപ്പർ ക്ലെയർ ടെയ്ല റെയും ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്